പരിഹരിക്കുന്നതിനായുള്ള ഒത്തു തീർപ്പ് വൃവസ്ഥ നടപ്പിലാക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി

കോൺഗ്രസ് അ്ധ്യക്ഷൻ രാഹുൽഗാന്ധി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി

മോശം പെരുമാറ്റത്തെ തുടർന്ന് എ ഐ

എം

ആന്ധ്രാപ്രദേശിലെ ബി

പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സിഡ്നിയിൽ

അസം നിയമസഭയി ലേയ്ക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേയ്ക്കും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സീറ്റ് സംവരണം നൽകുന്നത് സംബന്ധിച്ച് സമിതി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അസം ജനങ്ങളുടെ സാംസ്കാരിക സാമൂഹ്യ പൈതൃകം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സ്വീകരി ക്കേണ്ട നടപടികൾ സമിതി വിലയിരുത്തും

സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ കൂടി കടന്നൂപോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന് അരേണൽ എക്സ്പ്രസ് എന്ന പേര് നൽകിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

റാഫേൽ വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി പറഞ്ഞു കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പുവച്ച കരാറിലെ വിമാന വിലയെക്കാൾ കുറവാണ് എൻ

ഗവൺമെന്റ് ഒപ്പുവച്ച കരാറിന് കരാറിൽ അനിൽ അംബാനി യുടെ കമ്പനിയെ ഉൾപ്പെടുത്തിയത് ഫ്രഞ്ച് കമ്പനിയാണെന്നും ജയ്റ്റ്ലി പറഞ്ഞു എന്നാൽ കരാർ ഒപ്പുവയ്ക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് മാത്രം അനിൽ അംബാനി കമ്പനി രൂപീകരിച്ചതിന്റെ സാംഗത്യത്തെ ശ്രീ

സ്ലൂംയുക്ത പാർലമെന്ററി സമിതി വിഷയം അന്വേഷിക്കണമെന്നു് ആർദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ സിട്ട്യുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വച്ചു ഉച്ചയ്ക്കുശേഷ്ട്ര മൂന്ന് തവണയാണ് ലോക്സഭ നിർത്തിവച്ചത്

എം

ഡി പി അംഗ ങ്ങളുടെ ബഹളത്തെത്തു്ട്രുന്ന് രണ്ട് തവണ സഭ നിർത്തി വച്ചിരുന്നു

പദ്ധതി പ്രകാരം പാചക വാതക കണക്ഷനുകളുടെ വിതരണം ആറ് കോടി തികച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവപ്പെട്ട കുടുംബങ്ങ ളിലെ സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിച്ച പദ്ധതിയാണ് പ്രധാന മന്ത്രി ഉജല യോജന പരിഷ്ക്കരണം നിർവഹണം രൂപമാറ്റം എന്നിങ്ങനെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതെന്നും ഉപരാഷ്ട്ര പതി ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ശാക്തീകരിക്കുകയും ആത്മാഭിമാന മുള്ളവരാക്കി മാറ്റുകയും ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നുവെന്ന് ശ്രീ

സമീപമുള്ള നദിയിൽ നിന്ന് ഖനിയിൽ നിറഞ്ഞ വെ്ള്ളം പുറത്ത് കളയാൻ ഭീമൻ പമ്പുകൾ എത്തിച്ചിട്ടുണ്ട്

എം

മൂന്നു പ്രാവശ്യം നിറുത്തിവച്ചശേഷം ഉച്ചകഴിഞ്ഞ് സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴാണ് സ്പീക്കർ സുമിത്ര മഹാജൻ സപ്സെന്റ് ചെയ്തവരുടെ പേരു വിവരം സഭയിൽ വായിച്ചത്

ഐ എ

എം

വെങ്കടേഷ് ബാബു ഡോ

കാമരാജ് എ

രാധാകൃഷ്ണൻ എം ഉദയകുമാർ എന്നിവർ ഉൾപ്പെടെ ഉള്ളവരെ യാണ് സ്പീക്കർ സഭയിൽ നിന്നു സസ്പെന്റ് ചെയ്തത്

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ വോയിസ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയെന്നുള്ള അവരുടെ പ്രഖ്യാപനം ജനങ്ങളെ വഴി തെറ്റിക്കാനാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ കർഷകരുടെയും വായ്പകൾ എഴുതിതള്ളിയിട്ടില്ല കാർഷിക കടം എഴുതി തള്ളു ന്നത് കർഷകർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ശരിയായ പരിഹാര മാർഗവുമല്ല ആത്മഹത്യ ചെയ്യുന്ന കർഷകരിൽ ഭൂരി ഭാഗവും സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും വായ്പ എടുത്തവരാണെന്ന് ശ്രീ

ഇ്വരെ തിരികെയെത്തിക്കാൻ നിയമ നയതന്ത്ര മാർഗ്ങ്ങളിലൂടെ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്നും പ്രധാനമീന്തി പറഞ്ഞു കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള നൂടപ്പട്ടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് ചരക്ക്സേവന നികുതി ഏർപ്പെടുത്തിയതിലൂടെ നികുതി സംവിധാനം ലളിതവൽക്കരിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാന വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചകൾ നടക്കേണ്ടതു ണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

രാജ്യത്തിന്റെ ഗുണത്തിനുവേണ്ടി അത് ചെയ്യേണ്ടി വന്നുവെന്നും ശ്രീ

വാർത്താ ഏജൻസികൾക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകായിരുന്നു അദ്ദേഹം

ജെ

രാജ്യത്തിന്റെ ഭാവി സൃഷ്ടിക്കുന്ന മഹോത്സവമാണ് ജനാധിപത്യമെന്നും ഇന്ത്യയുടെ ഭാവി സൃഷ്ടിക്കുന്നതിന്റെ കേന്ദ്ര ബിന്ദുവാണ് യുവാക്കളെന്നും വീഡിയോ കോൺഫറൻ സിംഗിലൂടെ ഇന്ന് വൈകിട്ട് ആന്ധ്രാപ്രദേശിലെ പാർട്ടി പ്രവർത്ത കരുമായി സംവദിക്കവെ അദ്ദേഹം പറഞ്ഞു

നേരത്തേയും ഇവർ ദർശനത്തിന്റെന്ത്തിയിരുന്നെങ്കിലും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിൻപ്പാങ്ങുകയായിരുന്നു യുവതികൾ ദർശനം നടത്തിയതിനെ തുട്ർന്ന് ്ക്ഷേത്ര നട അടച്ച് ശുദ്ധിക്രിയ നടത്തിയശേഷം തുറക്കുക്യായിരുന്നു അതേസമയം യുവതി കളുടെ അയ്യപ്പ ദർശ്ശ്നുത്ത് തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ പ്രതിഷ്യ് പരിപാടികൾ നടക്കുന്നുണ്ട്

മെൽബ ണിലെ വിജയത്തോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട് നാലാം ടെസ്റ്റിലും ജയിച്ച് പരമ്പര വിജയം നേടാനാവും ഇന്ത്യ ശ്രമിക്കുക ടെസ്റ്റിനുശേഷം ഓസ്ട്രേലിയ യുമായി മൂന്ന് ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യ ഏറ്റുമുട്ടും

ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം തലസ്ഥാനമായ പാട്നയിലെ എസ്

യായി ഗരിമ മാലി കിനെ നിതീഷ് കുമർ ഗവൺമെന്റ് നിയമിച്ചു

ഐ